പ്രകൃതി ദുരന്തങ്ങൾക്ക് വിദേശ സ്ഹായം സ്വീകരിക്കേണ്ടതി ല്ലെന്ന നയം കേരളത്തിന് മാത്രമായി ഒരു തവണ ഒഴിവാക്കണ മെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട് പെട്ടെന്ന് വെള്ളം തുറന്നു വിട്ടതാണ് സംസ്ഥാനത്ത് മഹാപ്രളയത്തിന് കാരണമായതെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു ഇന്ന് ഉത്രാടം

വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നവർക്ക് അഞ്ച് കിലോ അരി ഉൾപ്പെടെ കിറ്റും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രകൃതിക്ഷോഭത്തിന് സ്ഥിരമായി ഇരയാകുന്ന പ്രദേശങ്ങളിലെ ആൾക്കാരെ പുനർനിർമാണത്തിന്റെ അവസരത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കേണ്ടിവരുമെന്നും ഇതിനായി പ്രാഥമിക ചർച്ച ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നവരുടെ എണ്ണം കൂടിവരികയാണെന്ന് അദ്ദേഹം അറിയിച്ചു

ചെങ്ങന്നൂർ കോഴഞ്ചേരി ആലപ്പുഴ പറവൂർ ചാലക്കുടി എന്നി വിടങ്ങളിലെ കൃാമ്പുകൾ സന്ദർശിച്ചപ്പോൾ പ്രവർത്തനത്തിൽ ജന ങ്ങൾ തൃപ്തരാണെന്നാണ് മനസിലായതെന്ന് മുഖൃമന്ത്രി പറഞ്ഞു ക്യാമ്പു നടത്തിപ്പ് സംബന്ധിച്ച് പരാതികളൊന്നും പൊതുവേ അവർക്കില്ലെന്നും അദ്ദേഹം വൃക്തമാക്കി വീടുകൾ വൃത്തിയാക്കുന്നതിന് ഗവൺമെന്റും സന്നദ്ധസംഘട നകളും ചേർന്ന് സംവിധാനം ഒരുക്കുമെന്ന് അവരെ അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു

വൈദ്യുതി വിതരണം പുനസ്ഥാപിക്കുന്നതിന് നടപടി വേഗത്തിൽ പുരോഗമിക്കുകയാണ്

നമ്മുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കേണ്ടത് ജന ങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനും നാടിനെ പുനർനിർമ്മിക്കുന്ന തിനും നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് ശ്രദ്ധ മാറ്റി മറ്റ് തർക്കങ്ങ ളിലേക്ക് കടക്കുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ദുർബലപ്പെ ടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

അന്തർ മന്ത്രാലയ സംഘം വീണ്ടും സംസ്ഥാനം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തിയ ശേഷം കൂടുതൽ സഹായം അനുവദിക്കുമെന്നും മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു

സാമ്പത്തിക സഹായത്തിന് പുറമെ സംസ്ഥാനത്തിന് ആവശ്യ മായിരുന്ന ആഹാരം വെള്ളം മരുന്നുകൾ ഭക്ഷ്യധാനൃങ്ങൾ മറ്റ് അത്യാവശ്യ സാധനങ്ങൾ എന്നിവ വൻതോതിൽ കേന്ദ്രം ലഭ്യമാക്കി യിട്ടുണ്ട് കേരളത്തിന്റെ അടിയന്തര സ്ഥഭാവം കണക്കിലെടുത്ത് ചട്ട ങ്ങളും നടപടിക്രമങ്ങളും മാറ്റിവെച്ചാണ് ഇവ വിതരണം ചെയ്ത തെന്നും മന്ത്രാലയം അറിയിച്ചു ൾ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുമ്പോൾ വിദേശ സഹായം സ്വീകരി ക്കേണ്ടതില്ലെന്ന നയം കേരളത്തിന് മാത്രമായി ഒരുതവണ ഒഴിവാക്ക ണമെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ആവശ്യപ്പെട്ടു കേരളത്തിന് പ്രത്യേക പരിഗണന നൽകണമെന്ന് കേന്ദ്രത്തിലെ പല മുതിർന്ന മന്ത്രിമാരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു

ദുരിതാശാസ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന് വൻതുക ആവശ്യമാണെന്നും അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു അതേസമയം ഡോ

എന്നാൽ ദീർഘകാല പുനരധിവാസ പ്രവർത്തനങ്ങൾ പണം സ്വീകരിക്കുന്ന കാര്യത്തിൽ ഓരോ കേസും പരിശോധിച്ച് നട പടി സ്വീകരിക്കാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നതെന്നും അദ്ദേഹം ടിറ്ററിൽ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ പ്രളയക്കെടുതിയിൽ വീടുകൾ നശിച്ചവർക്ക് അവ പുനർനിർമ്മിച്ച് നൽകും വരെ സൌജനൃ താമസ സൌകരൃം ഒരുക്കുമെന്ന് മന്ത്രി ഡോ

ജലീൽ പറഞ്ഞു മലപ്പുറത്ത് ദുരി താശ്വാസ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ സംസാരി ക്കുകയായിരുന്നു അദ്ദേഹം കെടുതികൾക്ക് ഇരയായവർക്ക് സഹായ ധനം ലഭിക്കാൻ ദുരി താശ്വാസ കൃാമ്പുകളിൽ കഴിയണമെന്ന പ്രചാരണം തെറ്റാണെന്നും മന്ത്രി വൃക്തമാക്കി മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിലെ വീടുകൾ വെള്ള ത്തിൽത്തന്നെ കാലുകുത്താൻ മണ്ണില്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴും കുട്ടനാട്ടിൽ

മൂന്ന് ലക്ഷത്തോളം പേർ ക്യാമ്പുക ളിൽ കഴിയുന്നുണ്ട് കുട്ടനാട്ടിൽ വള്ളം മറിഞ്ഞ് രണ്ടു പേരെ കാണാതായി വെളിയ നാട് സ്വദേശികളായ ടിബിൻ ബിബിൻ എന്നിവരെയാണ് ഇന്നലെ വൈകീട്ടോടെ കാണാതായത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഒരാൾ നീന്തി രക്ഷപ്പെട്ടു വെള്ളം കയറിയ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണം നൽകി മടങ്ങുമ്പോഴായിരുന്നു അപകടം ഇവർക്കായി തിര ച്ചിൽ തുടരുകയാണ് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന മൂവ്വായിരത്തോളം കൂടുംബങ്ങൾക്ക് ഇന്ന് മുതൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ

ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഒറ്റപ്പെട്ട നെല്ലിയാമ്പതി യിലേക്ക് ഈ മാസത്തേക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ എത്തിച്ചു കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു ദുരിത ബാധിതർക്ക് ആശ്വാസം എത്തിക്കാനും വീട് നഷ്ടപ്പെട്ട വർക്ക് താമസ സൌകര്യം ഒരുക്കാനും റോഡ് വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാനും കർമ്മപദ്ധതി തയ്യാറാക്കി യുദ്ധകാലാടിസ്ഥാന ത്തിൽ നടപ്പാക്കുമെന്ന് മന്ത്രി എം

ഇടുക്കി ജില്ല യിലെ മഴക്കെടുതി അവലോകന യോഗത്തിൽ അധൃക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറുതോണി പാലം മൂന്നാർ ഉദുമൽപേട്ട് റോഡിലെ പെരിയ വരൈ പാലം എന്നിവ താൽക്കാലികമായി ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനായി സൈനൃത്തിന്റെ സഹായത്തോടെ ബെയ്ലി പാലം നിർമ്മിച്ചു നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു

പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിത മേഖലകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊജ്ജിതമായി നടന്നു വരുന്നു

ൃ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പുന രധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ കോഴിക്കോട് ചേർന്ന സർവ്വകക്ഷി യോഗം നിർദ്ദേശം നൽകി

രാമകൃഷ്ണനും എ

റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ഒൻപത് കോടി രൂപ അനുവദിച്ചതായും മന്ത്രിമാർ പറഞ്ഞു

ഉരുൾപ്പൊട്ടലിനെ തുടർന്ന് ഭൂമി പൂർണ്ണമായും നഷ്ടമായവർക്ക് നഷ്ടപരിഹാരത്തിന് പ്രത്യേക പാക്കേജ് തയ്യാറാ ക്കാനും കണ്ണൂരിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമാ യി കേരളത്തെ ദുരിതത്തിലാക്കിയ പ്രളയത്തിന് കാരണം മുല്ലപ്പെരി യാർ ഡാമിൽ നിന്ന് തമിഴ്നാട് പെട്ടെന്ന് വെള്ളം തുറന്നു വിട്ടതാ ണെന്ന് കേരളം സുപ്രീംകോടതിയെ അറിയിച്ചു

മെന്ന് നിരന്തരം അഭ്യർത്ഥിച്ചെങ്കിലും തമിഴ്നാട് ചെവിക്കൊണ്ടി ല്ലെന്നും സത്യവാങ്മൂലത്തിൽ അറിയിച്ചു മുല്ലപ്പെരിയാർ ഡാമിലെ ഷട്ടറുകൾ ഒന്നിച്ച് തുറന്നതോടെ ഇടുക്കി ഡാമിൽ നിന്ന് വൻതോതിൽ ജലം പുറത്തേക്കൊഴുക്കാൻ നിർബ ന്ധിതമായെന്നും ഇതാണ് മഹാപ്രളയത്തിന് കാരണമായതെന്നും സത്യ വാങ്മൂലത്തിൽ വ്യക്തമാക്കി

തിരുവോണ തലേനാളിലെ ഉത്രാടപാച്ചിൽ ഇന്ന് എന്നാൽ പ്രളയ ദുരന്തത്തെ തുടർന്ന് പതിവ് ആഘോഷങ്ങളില്ലാതെയാണ് മലയാളി കൾ ഈ വർഷം ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് ആർഭാ ടങ്ങൾ കുറച്ച് ദൂരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രധാന്യം നൽകി യതിനാൽ ജില്ല കേന്ദ്രങ്ങളിലെ ഓണാഘോഷ പരിപാടികൾ ഒഴിവാ ക്കിയിരുന്നു എങ്കിലും മഴ മാറി വെയിൽ വന്നതോടെ ഓണത്തോടനുബന്ധിച്ച തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് പഴം പച്ചക്കറി പൂവ് വിപണിയും തുണിക്ക ച്ചുവടവും വഴിയോര കച്ചവടങ്ങളും സജ്ജീവമായിട്ടുണ്ട് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം കേരളീയർക്ക് ഓണസന്ദേശം നൽകി അതിരൂക്ഷമായ പ്രളയക്കെടുതിയെ ഒരുമയിലൂടെ നാം അതി ജീവിച്ച സമയത്താണ് ദേശീയോത്സവമായ ഓണം എത്തിയിരിക്കു ന്നതെന്ന് ഗവർണർ പറഞ്ഞു ലോകത്തെങ്ങുമുള്ള മലയാളികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജ യൻ ഓണാശംസ നേർന്നു പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ആശ്വാസമെത്തിച്ചുകൊണ്ടാവട്ടെ ഇത്തവണ ഓണാഘോഷമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ജലീൽ മലപ്പുറത്ത് അറിയിച്ചു

അദാലത്തിലേക്ക് അപേക്ഷകൾ ഓൺലൈനായും നേരിട്ടും സ്വീകരിക്കും